ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജ്ജിതം

തീരത്ത് പുരിയിലെത്താൻ സാധ്യത നാശനഷ്ടങ്ങൾ ഒഴിവാക്കാൻ വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ

ഐകൃരാഷ്ട്രസംഘടന ആഗോള ഭീകരനായി ന് പ്രഖ്യാപിച്ച ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന് പാകിസ്ഥാൻ ഔദ്യോഗിക യാത്രാവിലക്ക് ഏർപ്പെടുത്തി

സൺ റൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തി പ്തേ ഓഫിൽ ഇടം നേടി

എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലേയും താരപ്രമുഖർ തന്നെ പ്രചാരണ രംഗത്തുണ്ട് അഞ്ചാം ഘട്ടത്തില്ലേയ്ക്കുള്ള പ്രചാരണം നാളെ വൈകിട്ട് അവസാനിക്കും

പ്രധാന്യമിത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലെ സിക്കർ ബിക്കാനീർ എന്നിവടങ്ങളിലെ തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യുട്

ക്കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി ഇന്ന് യു പി യിലെ മഹാരാജ്ഗങ്ങിലും ശിവ്ഗാർഗിലും പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും ബ്രീഎസ്പി അധ്യക്ഷ മായാവതി യു

യിലെ തന്നെ സിദ്ദാർത്ഥനഗർ സുൽത്താൻപൂർ എന്നിവിടങ്ങളിൽ ഇന്ന് നടക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ അഭിവാദ്യം സ്വീകരിക്കും

രാഷ്ട്രീയ പരമായി വിലനൽകേണ്ടി വരുമെന്നതിനാലാണ് പ്രതിപക്ഷം ഈ നേട്ടത്തെ അംഗീകരിക്കാത്തതെന്ന് കേന്ദ്ര മന്ത്രി അരുൺ ജെയ്റ്റ്ലി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോടു പറഞ്ഞു

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വിദേശകാര്യമന്ത്രാലയത്തിന്റെയും അക്ഷീണ പരിശ്രമത്തിന്റെ ഫലമാണ് മസൂദ് അസറിനെതിരായ യു എൻ നടപടിയെന്ന് രാജ്യരക്ഷാമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു ഭീകരവാദത്തിനെതിരെ ഇന്ത്യ യാതൊരു വിധ സഹിഷ്ണുതയും പുലർത്തില്ലെന്നും രാജ്യരക്ഷാമന്ത്രി കൂട്ടിച്ചേർത്തു

ജീവഹാനി ഒഴിവാക്കാൻ എല്ലാ മുൻകരുതലുകളും സംസ്ഥാന ഗവൺമെന്റ് ഏർപ്പെടുത്തി ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ ഇന്നലെ വൈകിട്ട് ഗഞ്ചാം ഗജപതി കുർഭാപുരി ജഗദ്സിങ്പൂർ എന്നീ ജില്ലകളിൽ അതി ശക്തമായ മഴ പെയ്തു

നിലവിൽ പ്രുഴലിക്കാറ്റിന്റെ ഗതി കിഴക്കൻ തീരപ്രദേശത്തെ ലക്ഷ്യം വച്ചായത്തിനാൽ ഇവിടങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നു് മുന്നറിയിപ്പുണ്ട് തീരപ്രദേശങ്ങളിൽ സ്കൂളുകൾക്ക് ക്വൺമെന്റ് അവധി നൽകി

യാത്രാബോട്ടുകളുടെ സർവ്വീസികളും ഇന്നും നാളെയും നിർത്തലാക്കി

വിശദാംശങ്ങളുമായി ഗോപകുമാർ

ഫോനി ചുഴലിക്കാറ്റ് ഭീഷണി നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഫോനി ഒഡീഷയിൽ പുരിക്ക് സമീപം ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ആഞ്ഞടിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു

ഒഡീഷയിലെ ഗഞ്ജം ഗജപതി കുർദ പുരി ജഗദ്സിംഗ്പൂർ കേന്ദ്രപാഡ ഭദ്രൽ ജെയ്പൂർ ബാലസോർ എന്നിവിടങ്ങളിലാണ് ചുഴലിക്കാറ്റിന് സാധ്യത ഒഡീഷയിൽ തിരമാലകൾ ഒന്നരമീറ്റർ ഉയരുമെന്നും മുന്നറിയിപ്പുണ്ട്

ചുഴലിക്കൊടുങ്കാറ്റ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ രക്ഷാ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭു വിമാനകമ്പനികളോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

വേദാന്ത ദേശികന്റെ പ്പോലെ മഹാനായ വിശുദ്ധരുടെയും ആത്മീയാചാര്യൻമാരുടെയുർ ജീർിതത്തിലേക്കു വെളിച്ചം വീശുന്ന പാഠ്യഭാഗങ്ങൾ പാഠപുസ്ത്തിക്ങ്ങളിൽ ഉൾപ്പെടുത്തണമെന്നും ഇത് മനുഷ്യത്വം സമാധാന്ത് എന്നീ ഗുണങ്ങൾ സ്വാംശീകരിക്കാനും അത് അനുവർത്തിക്കാനും ് കുട്ടികളെ സഹായിക്കുമെന്ന് ശ്രീ നായിഡു പറഞ്ഞു

അസറിന്റെ പാകിസ്ഥാനിലെ വസ്തുവകകൾ മരവിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇന്നലെ പാകിസ്ഥാൻ വിദേശമന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവിൽ അസറിനെതിരായ ഐക്യരാഷ്ട്ര പ്രമേയം പാക് ഗവൺമെന്റ് എല്ലാ അർത്ഥത്തിലും പാലിക്കുമെന്ന് ഉറപ്പ് നൽകി അസറിനെതിരായ നടപടിയ്ക്ക് ഇതുവരെ വിഘാതം നിന്ന ചൈനകൂടി നയം മാറ്റിയതോടെയാണ് അമേരിക്കഫ്രാൻസ് ബ്രിട്ടൺ എന്നീ രാജ്യങ്ങൾ കൊണ്ടുവന്ന പ്രമേയം ഇന്നലെ പാസ്സായത് ജമ്മുകാശ്മിരിലെ പുൽവാമ ഭീകര ആക്രമണത്തെ തുടർന്ന്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ രാജ്യങ്ങൾ അസറിനെതിരെ നീങ്ങിയെങ്കിലും ചൈനയുടെ എതിർപ്പ് കാരണം അന്ന് പ്രമേയം പാസ്സായിരുന്നില്ല

ഉത്തരവ് എല്ലാ എഫ് എം ചാനലുകൾക്കും വാർത്താ ചാനലുകൾക്കും ബാധകമാണെന്ന് അറിയിപ്പിൽ പറയുന്നു രാഷ്ട്രീയ പരസ്യങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മിഷന്റെ സർട്ടിഫിക്കേഷൻ നമ്പർ ഉറപ്പുവരുത്തേണ്ടതാണ് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിലേയും പ്രസാർഭാരതിയിലേയും ഉദ്യോഗസ്ഥർ ഇന്നലെ ന്യൂഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് ഓഫീസ് വിളിച്ചുചേർത്ത യോഗത്തിൽ സംബന്ധിച്ചു നിർദ്ദേശത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്ന് വിവിധ ചാനൽ പ്രതിനിധികളും വൃക്തമാക്കി

എസ് ആർ ഒ

കിരൺകുമാറിനെ ഫ്രഞ്ച് ഗവൺമെന്റ് രാജ്യൂര്ത്ത് പ്രമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ പുരസ്കാരം നൽകീ ആദരിച്ചു

കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമമനുസരിച്ച് മുംബൈ പ്രത്യേക കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്

രാജ്യത്ത് എണ്ണ വിതരണം ചെയ്യുന്നതിനായി മറ്റ് പ്രധാന എണ്ണ ഉത്പാദക രാജ്യങ്ങളുമായി പദ്ധതി തയ്യാറാക്കിയതായും വിദേശകാരൃ വക്താവ് രവീഷ് കുമാർ മാധ്യമങ്ങോടു പറഞ്ഞു

ഇന്ത്യ ചൈന ഇറ്റലി തായ്വാൻ ജപ്പാൻ ടർക്കി ദക്ഷിണകൊറിയ എന്നീ രാജ്യങ്ങൾക്ക് ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് കഴിഞ്ഞ നവംബറിൽ താത്കാലിക അനുമതി നൽകിയത് ഇന്നലെയാണ് അവസാനിച്ചത്

എൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് പ്നേ ഓഫിൽ ഇടം നേടി

സൺ റൈസേഴ്സ് ഹൈദരാബാദിനെ സൂപ്പർ ഓവറിൽ പരാജയപ്പെടുത്തിയാണ് മുംബൈ വിജയം നേടിയത്

അവസാന ഓവറിൽ ഹൈദരാബാദ് നേടിയു എട്ട് റണ്ണിന് മറുപടിയായി മൂന്ന് പന്ത് അവശേഷിക്കെ ഒൻപത് റണ്ണെടുത്ത്തോടെ മുംബൈ വിജയം കുറിക്കുകയായിരുന്നു ഇന്ന് നടക്കുന്ന എലിമിനേഷൻ മാച്ചിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കിങ്സ് ഇല്ല്വൻ പഞ്ചാബുമായി ഏറ്റുമുട്ടും

ന്യൂസ് ഡെസ്ക് ആകാശവാണി